ശിവക്ഷേത്രങ്ങളിൽ നാളെ രാവിലെ വരെ നീളുന്ന പ്രത്യേക പൂജകൾ അരങ്ങേറും

ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ നടക്കുന്ന ശിവാലയ ഓട്ടത്തിൽ ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഇക്കുറി അനുഭവപ്പെടുന്നത്

ബലിതർപ്പണത്തിനായി ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്